പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒസാക്കയിലെത്തി

പഞ്ചായത്തുകളെ ്ബ്രോഡ്ബാന്റ് ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ക്ട്രേന്ദ്ര ഗവൺമെന്റ് തീരുമാനം

മാഞ്ചസ്റ്ററിലാണ് മത്സരം

സമ്മേളനത്തിനിടെ പ്രധാനമന്ത്രി അംഗരാജ്യങ്ങളുടെ തലവൻമാരുമായി കൂടിക്കാഴ്ച നടത്തും വിശദാംശങ്ങളുമായി നന്ദകുമാർ

ഇന്ന് രാവിലെ ജാപ്പനീസ് പ്രധാനമന്ത്രിയെ ൂകാണുന്ന ശ്രീ നരേന്ദ്രമോദി നാളെ അമേരിക്കൻ പ്രസിദ്ധന്റ് ഡൊണാൾഡ് ട്രംപുമായി ആഗോള വിഷയങ്ങളും പരൂസ്പൂർ പ്രാധാന്യമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യും സമ്മേളനിത്തിനിടെ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളിക്ക്ളും സാധ്യതകളും സംബന്ധിച്ച് മറ്റ് നേതാക്കളുമായി താൻ ആശ്രയ്ചിനിമയം നടത്തുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി ന്ടുത്തിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു ബഹുരാഷ്ട്ര ബ്രസ്ങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണ ഊട്ടിയുറപ്പിക്കാൻ സമ്മേള്ളനും സഹായിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇന്നത്തെ മാറുന്ന ലോകത്തിൽ ഈയൊരു സമീപനത്തിന് അതീവ പ്രാധാന്യമാണുള്ളതെന്ന് കൂട്ടിച്ചേർത്തു

മനുഷ്യ കേന്ദ്രീകൃത ഭാവി സമൂഹം എന്നതാണ് ഇത്തവണത്തെ ഉച്ചകോടിയുടെ മുദ്രാവാകൃം ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ സാമ്പത്തിക ഭദ്രത ഭീകര വിരുദ്ധ പ്രവർത്തനങ്ങൾ സാമ്പത്തിക രംഗത്തെ ഡിജിറ്റൽ ഇടപാടുകളിലെ പുത്തൻ കണ്ടെത്തലുകൾ നിർമ്മിതബുദ്ധി തുടങ്ങിയ വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ചയാകും

രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി അഞ്ച് ലക്ഷം കോടിയുടെ സാമ്പത്തിക വളർച്ചയാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്നും ഇതിനായി എല്ലാ സംസ്ഥാനങ്ങളും കൂട്ടായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

രണ്ട് ലക്ഷ് ഗ്രാമ്പഞ്ചായത്തുകളെയും ഭാരത്നെറ്റ് പദ്ധതിയുടെ ഭാഗമായി ഇന്റർറ്റെറ്റുമായി ബന്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്

ബിജെപിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദയുടെ സാന്നിദ്ധ്യത്തിലാണ് ശ്രീ

അദ്ദേഹത്തിന് പുറമെ കണ്ണൂരിൽ നിന്നുള്ള മുൻ എം

പി അബ്ദുള്ളക്കുട്ടി റ്റി ഡി പി വക്താവ് ലങ്ക ദിനകർ എന്നിവരും നേരത്തെ ബിജെപി യിൽ ചേർന്നിരുന്നു

സംസ്ഥാന നിയമസഭയിൽ ഇന്നലെ ഗവർണറുടെ പ്രസംഗത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി മരിച്ചവരിൽ എട്ട് പേർ തൃണമൂൽ കോൺഗ്രസ്സ് പ്രവർത്തകരും രണ്ടു പേർ ബിജെപി പ്രവർത്തകരുമാണെന്ന് മുഖ്യമന്ത്രി മമത ബാനർജി അറിയിച്ചു സംസ്ഥാനത്ത് ആഭ്യന്തര കലഹം സൃഷ്ടിക്കാനാണ് ബിജെപി യുടെ ശ്രമമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി

ഏകദേശം മൂന്ന് ലക്ഷം ഹെക്ടർ ഭൂമിയിലേക്ക് ജലസേചനം നടത്താൻ ഈ പദ്ധതി സഹായകരമാകുമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ഡേക്കർ ഇന്നലെ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

വൈകിട്ട് അഞ്ചുമണിവരെയാണ് പോളിംഗ് വോട്ടെണ്ണൽ നാളെ നടക്കും

ഡി എ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി ഗജേന്ദ്രസിങ് ഷെഖാവത് പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് ബഹുമുഖ സമീപനമാണ് ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു രാജ്യസഭയിൽ കുടിവെള്ളം സംബന്ധിച്ചു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ സംസാരിക്കവേയാണ് മന്ത്രി ഇക്കാര്യം അറീയ്യിച്ചത് ഭൂഗർഭ ജലസംരക്ഷണത്തിൽ രാജ്യത്തിന് അത്മിന്റേതായ പാരമ്പര്യമാണുള്ളത് ജലസംരക്ഷണ് ർഗത്ത് ഗവൺമെന്റിന്റെ ഇടപെടലിനെക്കാൾ പ്രാധാന്യം പ്ലൃക്തിഗത പ്രവർത്തനങ്ങൾക്കാണെന്ന് പറഞ്ഞ് അദ്ദേഹം രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ ഭൂഗർഭ ജലവിതാണ് താഴുന്നതിൽ ആശങ്ക അറിയിച്ചു

നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത മിക്ക അംഗങ്ങളും നിലവിലെ ജലക്ഷാമത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി

ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ സുരക്ഷാസമിതി വികസനത്തിനായി നടന്നുവരുന്ന ഗവൺമെന്റ് തല അന്തർദ്ദേശീയ യോഗത്തിൽ ഇന്ത്യ സജീവമായി പങ്കെടുത്തുവരികയാണെന്ന് അദ്ദേഹം അറിയിച്ചു പരസ്പരവും ബഹുരാഷ്ട്രപരവുമായ വിവിധ വേദികൾ ഇന്ത്യ ഇതിനായി പ്രയോജനപ്പെടുത്തുകയാണെന്നും കേന്ദ്രസഹമന്ത്രി പറഞ്ഞു

രണ്ടാം തവണ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷമുള്ള ശ്രീ മോദിയുടെ ആദ്യത്തെ മൻ കി ബാത് പ്രക്ഷേപണ പരിപാടിയാണ് ഇത്

സി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മൽസരത്തിൽ പാകിസ്ഥാൻ ന്യൂസിലന്റിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി

പാകിസ്ഥാൻ പേസർ ഷഹീൻ അഫ്രീദി മൂന്ന് വിക്കറ്റ് നേടി പാകിസ്ഥാൻ ബാബർ അസമിന്റെ അപരാജിത സെഞ്ചറിക്കരുത്തിൽ അഞ്ച് പന്ത് ബാക്കി നിൽക്കെ വിജയം കണ്ടെത്തുകയായിരുന്നു

ഇന്ന് നടക്കുന്ന മൽസരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ നേരിടും

ശേഷിക്കുന്ന നാല് മൽസരങ്ങളിൽ രണ്ട് വിജയം നേടിയാൽ ഇന്ത്യയ്ക്ക് സെമി ഫൈനൽ ബെർത്ത് ഉറപ്പിക്കാം

പല ബാങ്കുകളും നാണയങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന ജനങ്ങളുടെ പരാതിയെ തുടർന്നാണ് റിസർവ്വ് ബാങ്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഇത് കർശനമായി പാലിക്കണമെന്നും ആർ

ഐ അറിയിച്ചു

എന്നാൽ ്ഥ്നവിനിയോഗ കാര്യത്തിൽ ട്രംപ് ഭരണകൂടത്തിനുമേൽ സഭ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്